കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഇന്നു മുതൽ രാത്രി കർഫ്യൂ

ഒന്ന് മുതൽ കോവിഡ് പാക്സിൻ നൽകാൻ കേന്ദ്ര തീരുമാനം സംസ്ഥാനത്ത് നാട്ട്ളെയും മറ്റന്നാളും ന് കോവിഡ് കൂട്ടപ്പരിശോധന നടത്തും ലക്ഷ്യമിടുന്നത് മൂന്ന് ലക്ഷം പരിശോധനകൾ

പരിശോധനയും നിയന്ത്രണങ്ങളും കർശനമാക്കി

രൂപയുടെ സ്വർണ്ണം പിടികൂടി ഐ

മുംബൈ ഇന്ത്യൻസ് മത്സരം

ഇന്നുമുതൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തും

നിലവിൽ രണ്ടാഴ്ചത്തേയ്ക്ക് ഏർപ്പെടുത്തുന്ന കർഫ്യൂ നീട്ടണമോ എന്ന കാര്യം പിന്നീട് പരിശോധിക്കും ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നതിനും പുറത്തിറങ്ങുന്നതിനുമാണ് നിയന്ത്രണം

ട്യൂഷൻ സെന്ററുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല ഓൺലൈൻ ക്ലാസുകൾ നടത്താം ആരാധനാലയങ്ങളിൽ പുരോഹിതരുടെയ്യുമുക് ജീവനക്കാരുടെയും ചുരുങ്ങിയ പങ്കാളിത്തം മാത്രമേ പാട്ടുള്ളൂ

ക്ോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക്തിരെ കർശന നടപടിയുണ്ടാവും

കോവിഡ് പ്രഥമ ചികിത്സാ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കും

ആൾക്കൂട്ടം നിയന്ത്രിക്കാനും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കർശന നടപടികൾ സ്വീകരിക്കാനും പ്രത്യേക സംഘങ്ങൾ രൂപവൽക്കരിച്ചു

കണ്ണൂർ നഗരസഭാ പരിധി പയ്യന്നൂർ തലശ്ശേരി നഗരസഭകൾ ചെറുതാഴം ചെറുപുഴ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ ഏതാനും പ്രദേശങ്ങളിലാണ് നിരോധനാജ്ഞ കോഴിക്കോട് ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വൃാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ജില്ലിറ്റ് കളക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദേശം നൽകിട്ട് ജില്ല്യിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ എട്ട് ശൃത്യാന്നം വർധനവാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഉണ്ടായത്

ബംഗളുരു നഗരപരിധിയിലാണ് ഏറ്റവുമധികം രോഗവ്യാപനം രേഖപ്പെടുത്തിയത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഇതോടൊപ്പം കോവിഡ് വാക്സിൻ യജ്ഞത്തിന് കൂടുതൽ ഉദാരവൽകൃതവും വേഗമേറിയതുമായ മൂന്നാംഘട്ട നയവും കേന്ദ്രം പ്രഖ്യാപിച്ചു

ഈ വാക്സിനുകൾ കേന്ദ്രം ക്വാട്ട വൃവസ്ഥയിൽ സംസ്ഥാനങ്ങൾക്ക് സൌജനൃമായി നൽകും

അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഔഫ് ഗ്ലമ്ഡിക്കൽ സയൻസസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ്ലീഭാഗം എമരിറ്റസ് പ്രൊഫസറും ലോകാരോഗൃ സംഘടനയുടെ മുൻ ഉപദേഷ്ടാവുമായ ഡോ

എൻ പണിക്കർ ആകാശവാണി വാർത്തകളോട്

സംസ്ഥാനത്ത് തുടർച്ചയായ നാലാം ദിവസവും പതിനായിരത്തിന് മുകളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം

മകനും മരുമകൾക്കും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണിത് അതേസമയം തനിക്ക് രോഗലക്ഷണങ്ങ ളൊന്നുമില്ലെന്നും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഓൺലൈൻ വഴി നടത്തുമെന്നും മന്ത്രി ഫെയ്സ്ബുക്കിലൂടെ അറിയിച്ചു

കോവിഡ് ഇ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ചെക്ക് പോസ്റ്റുകൾ വഴി പ്രവേശനം അനുവദിക്കുന്നത്

ടി

ആർ നെഗറ്റീവ് റിപ്പോർട്ട് നിർബന്ധമാണ്

കോവിഡ് പരിശോധനയ്ക്കൊപ്പം ഇ പാസ് പരിശോധനയും ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് അധികൃതരുടെയും ആരോഗൃവകുപ്പ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നടത്തിവരികയാണ്

ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന മുഴുവൻ യാത്രക്കാർക്കും ജാഗ്രതാ പോർട്ടലിൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്

എസ് ഇ പത്താം ക്ലാസ്സ് പരീക്ഷ റദ്ദാക്കി പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ മാറ്റമില്ല

ഷാർജയിൽനിന്ന് എത്തിയ ബാലുശ്ശേരി വടകര സ്വദേശികളിൽ നിന്നും ബഹ്റിനിൽ നിന്ന് എത്തിയ കാസർകോട് സ്വദേശിയിൽ നിന്നുമാണ് സ്വർണ്ണം പിടിച്ചെടുത്തത്

എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും

ഡി എഫിനും ബി ജെ

ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് യു